പ്രചാരണം ഉൌർജ്ജിതം

ക്രൈംബ്രാഞ്ച് നാളെ ചോദ്യം ചെയ്യും

സ്കൂളുകളും കോളേജുകളും തുറന്നപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഫോൺ സേവനം ലഭ്യമാക്കിയിരുന്നു ജമ്മുകാശ്മീരിൽ വിനോദസഞ്ചാരികൾക്കുള്ള നിയന്ത്രണം കഴിഞ്ഞ ദിവസം നീക്കിയിരുന്നു ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി പിൻവലിച്ചതോടെയാണ് ഫോൺ ഉപയോഗത്തിൽ ഗവൺമെന്റ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്

യാതൊരു പ്രകോപനവുമില്ലാതെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടി ഉതിർക്കുകയായിരുന്നുവെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിക്കുകയാണ്

എല്ലാ രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും വോട്ടഭ്യർത്ഥിച്ച് പ്രചാരണത്തിലാണ് കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത ദിവസങ്ങളിൽ ഹരിയാറ്റിയിലും മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും ് ഹരിയാനയിൽ പ്രധാനമന്ത്രി ഇന്ന് നാല് പ്രചാരണ റാലികളെ അഭിസംബോധന ചെയ്യും

കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മേവാഡിലെ ന്യൂവിൽ പൊതുയോഗത്തിൽ പ്രസംഗിക്കും

ജെ

ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് രണ്ട് പ്രചാരണ റാലികളിൽ പങ്കെടുക്കും ഗ്രാമീണ മേഖലയിലെ സമ്മതിദായകരെ അദ്ദേഹം അഭിസംബോധന ചെയ്യും മഹാരാഷ്ട്രയിൽ ബി ജെ

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ

അധ്യക്ഷൻ അമിത്ഷായും ഇന്നലെ സംസ്ഥാനത്ത് നിരവധി പ്രചാരണ റാലികളിൽ പങ്കെടുത്തു

ജെ

ന്യൂസ്ഡെസ്ക് ആകാശവാണി

ഭോപ്പാലിലെ മധ്യപ്രദേശ് അക്കാദമിയിലെ അംഗങ്ങളാണ് മരണമടഞ്ഞ ഹോക്കി താരങ്ങൾ

രക്ഷാപ്രവർത്തനം തുടരുന്നു

പരിക്കേറ്റവർക്ക് അടിയന്തിര ചികിത്സ ലഭ്യമാക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു

യു എസ് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ തുടങ്ങിയവരാണ് ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹത്തിന് പിന്നിലുള്ളത്

വെള്ളിയാഴ്ചയ്ക്കകം കുടിശ്ശിക അടച്ച് തീർത്തില്ലെങ്കിൽ വിമാനത്താവളങ്ങളിൽ ഇന്ധന വിതരണം നിർത്തിവയ്ക്കുമെന്ന് എണ്ണ കമ്പനികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു

ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ പൊതുമേഖലാ കമ്പനികളാണ് കുടിശ്ശിക സംബന്ധിച്ച് എയർ ഇന്തൃയ്ക്ക് കത്തയച്ചത്

മൺമറഞ്ഞ പിതൃക്കളുടേയും രാജ്യസേവനത്തിനിടെ ജീവൻ ബലി അർപ്പിച്ച പൊലീസ് ഉദ്യോഗസ്ഥരുടെയും ത്യാഗത്തിന്റെയും സ്മരണാർത്ഥമാണ് ആകാശ്ദീപ് സംഘടിപ്പിക്കുന്നത് വീടുകളുടെ മേൽക്കൂരയ്ക്ക് മുകളിലും നദികൾ കുളങ്ങൾ മരങ്ങൾ എന്നിവിടങ്ങളിലും തടികളിൽ തീർത്ത കൂട്ടകളിൽ മൺവിളക്കുകൾ തെളിയിച്ചാണ് ജനങ്ങൾ ശ്രദ്ധാജ്ഞലി അർപ്പിക്കുന്നത്

ഒരാഴ്ചത്തെ ദസ്റ്ററ അവധിക്കുശേഷമാണ് സുപ്രീംകോടതി വീണ്ടും ചേരുന്നത്

വാദം പൂർത്തിയാക്കുന്നതിന് പരമോന്നത കോടതി നേരത്തെ തന്നെ അന്തിമ നിർദ്ദേശം നൽകിയിരുന്നു

ഇതിനകം വാദം പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട കക്ഷികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്

നിയമ വിരുദ്ധമായി ആളുകൾ സംഘം ചേരുന്നത് നിയമംമൂലം വിലക്കിയിട്ടുണ്ട്

അതേസമയം മർടില്ലെ ഫ്ളാറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരം നിർണ്ണയിക്കാനുള്ള ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ നായർ കമ്മിറ്റി വീണ്ടും യോഗം ചേരുന്നു ഫ്ളാറ്റ് കൂട്ടമകൾക്ക് രേഖകൾ ഹാജരാക്കാൻ ഒരാഴ്ചത്തെ സമയം ന്റീട്ടി നൽകിയിട്ടുണ്ട്

ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിന് മുന്നോടിയായി പരിസരവാസികളുടെ യോഗം വിളിക്കും

കഴിഞ്ഞവർഷം ജനുവരിയിലായിരുന്നു കുഴിബോംബുകളും തോക്കും തിരകളും ഫ്യൂസ് വയറുകളും ഉൾപ്പെടെയുള്ളവ കണ്ടെടുത്തത് കുറ്റിപ്പുറത്ത് ക്യാമ്പ് തുടങ്ങിയ തിരുവനന്തപുരം യൂണിറ്റിൽ നിന്നുള്ള സംഘം കേസുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിച്ച് തെളിവെടുപ്പ് ആരംഭിച്ചു

ഇതുൾപ്പെടെ ആറ് കരാറുകളിൽ ഇരുരാഷ്ട്രങ്ങളിൽ ഒപ്പുവച്ചു ഉപരാഷ്ട്രപതി എം

സിയാറാ ലിയോണിലേക്കുള്ള ഉ്സ്ഥത്ല ഇന്ത്യൻ സംഘത്തിന്റെ ആദ്യ സന്ദർശനമാണ് ഇത് ഐക്യരാഷ്ട്രട് സംഘടനയിൽ കാലികമായ മാറ്റത്തിന്റെ ആവശ്യം ഇരുരാജ്യങ്ങളുട്ട് പങ്ക്ുവച്ചു ഇന്ത്യയുടെ പാൻ ആഫ്രിക്കൻ ടെലി വിദ്യാഭ്യാസം ടെലി മെഡിസിൻ സംരംഭങ്ങളായ ഇ വിദ്യാഭാരതി ഇ ആരോഗ്യഭാരതി തുടങ്ങിയ പദ്ധതികളിൽ സിയാറ ലിയോണിന്റെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പു വച്ചു

നായിഡു ഇന്നലെ സിയാറ ലിയോണിൽ എത്തിയത്

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ഡച്ച് രാജാവും രാജ്ഞിയും ഇന്ത്യ സന്ദർശിക്കുന്നത്

ഇന്ത്യയും നെതർലന്റ്സുമായുള്ള സാമ്പത്തിക രാഷ്ട്രീയ സഹകരണം മെച്ചപ്പെടുത്താൻ സന്ദർശനം പ്രയോജനപ്പെടുമെന്ന് വിദേശകാരൃ മന്ത്രാലയം വൃക്തമാക്കി

കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലും അവർ സന്ദർശനം നടത്തും

ടൂർണമെന്റിൽ ഇന്ത്യയുടെ രണ്ടാം വിജയമായിരുന്നു ഇത് റൌണ്ട് റോബിൻ ലീഗ് മത്സരത്തിൽ ഇന്ത്യ നാളെ ജപ്പാനെ നേരിടും